ഇനി ഒൻപത് ദിവസങ്ങൾ മാത്രം ശേഷിക്കെ പ്രചാരണം ഉച്ചസ്ഥായിയിൽ

രാഹുൽഗാന്ധിയുടെ വയനാട്ടിലേക്കുള്ള പത്രികാസമർപ്പണം മറ്റന്നാൾ

ദിവസത്തെ അമേരിക്കൻ സന്ദർശനം ഇന്ന് ആരംഭിക്കും

ഐ

വിജയം ഇന്ന് രാജസ്ഥാൻ ബാംഗ്ലൂരിനെ നേരിടും

പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ഒഡിഷയിലും ബിഹാറിലും തെരഞ്ഞെടുപ്പ് റാലികളിൽ പങ്കെടുക്കും കോൺഗ്രസ്സിന്റെ പ്രകടനപ്ത്രിക് ഇന്ന് പുറത്തിറക്കും

തെരഞ്ഞെടുപ്പ് ദിനങ്ങൾ അടുത്തോടെ രാഷ്ട്രീയപാർട്ടികളുടെ പ്രമുഖ നേതാക്കൾ ഓരോ ദിവസവും നിരവധി തെരഞ്ഞെടുപ്പ് റാലികളെയാണ് അഭിസംബോധന ചെയ്യുന്നത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ഒഡീഷയിലെ ഭവാനി പട്നയിലും ബീഹാറിലെ ജമുയിലും ഗയയിലും തെരഞ്ഞെടുപ്പ് റാലികളെ അഭിസംബോധന ചെയ്യും ബിജെപി ദേശീയ അധ്യക്ഷൻ അമിത്ഷാ തമിഴ്നാട്ടിലെ കാരക്കുടിയിലെ റാലിയെ അഭിസംബോധന ചെയ്യും

ഡൽഹിയിൽ കോൺഗ്രസ്സ് ആസ്ഥാനത്ത് നടക്കുന്ന ചടങ്ങിലാണ് പ്രകടനപത്രിക പുറത്തിറക്കുന്നത്

കോൺഗ്രസ്സ് ഇന്നലെ രാത്രി ഒൻപത് സ്ഥാനാർത്ഥികളുടെ പട്ടിക കൂടി പുറത്തിറക്കി

സംസ്ഥാനത്ത് പത്രിക സമർപ്പിക്കാനുളള അവസാന ദിനം മറ്റന്നാളാണ്

മറ്റന്നാൾ വരെ പത്രിക സമർപ്പിക്കാൻ അവസർമുണ്ട്

കേരള എക്സ്പ്രസ് ഉൾപ്പെടെ നാല് ട്രെയിനുകൾ വോട്ടർ ബോധവത്കരണ പരിപാടിയുടെ ഭാഗമാകും

കേരള എക്സ്പ്രസ് ഉൾപ്പെടെ നാല് ട്രെയിനുകളാണ് പ്രചാരണ പരിപാടിയുടെ ഭാഗമാവുന്നത് തിരുവനന്തപുരം റെയിൽവേ സ്റ്റേഷനിൽ ഇന്നലെ നടന്ന ചടങ്ങിൽ ചീഫ് ഇലക്ടറൽ ഓഫീസർ ടിക്കാറാം മീണ കേരള എക്സ്പ്രസ് ഫ്ളാഗ്ഓഫ് ചെയ്തു ഹിമസാഗർ എക്സ്പ്രസ് ഹൌറ എക്സ്പ്രസ് ഗുവാഹാട്ടി എക്സ്പ്രസ് എന്നിവയാണ് മറ്റ് ട്രെയിനുകൾ

ട്രെയിൻ കടന്നു പോകുന്ന ജില്ലകളിൽ ജില്ലാ കളക്ടർമാരും റെയിൽവേ സ്റ്റേഷൻ മാസ്റ്റർമാരും സ്വീകരണം നൽകും വോട്ടർ ബോധവത്കരണ പരിപാടിയായ സ്വീപിന്റെ ഭാഗ മായാണ് ട്രെയിനുകളിലും ബോധവത്കരണ പ്രവർത്തനങ്ങൾ നടത്തുന്നത്

ഐ എം

ഐ എം എൽ ജനറൽ സെക്രട്ടറി ദീപാങ്കൽ ഭട്ടാചാര്യ അറിയിച്ചു

ഡൽഹി ഹൈക്കോടതി ജഡ്ജി ജസ്റ്റിസ് ചന്ദർശേഖറായിരിക്കും ട്രൈബ്യൂണൽ അധ്യക്ഷനെന്ന് ആഭ്യന്തരമന്ത്രാലയം അറിയിച്ചു നിയമവിരുദ്ധ പ്രവർത്തന നിരോധന നിയമത്തിന്റെ അടിസ്ഥാനത്തിലാണ് ട്രൈബ്യൂണൽ സ്ഥാപിതമാകുന്നത് നേരത്തെ ഇവയെ നിയമവിരുദ്ധ സംഘടനകളായി കേന്ദ്രഗവൺമെന്റ് പ്രഖ്യാപിച്ചിരുന്നു

തദ്ദേശവാസിയായ ഒരു പ്പെൺകുട്ടിയും മരിച്ചു

ചിലിയിൽ സന്ദർശനം നടത്തുന്ന രാഷ്ട്രപതി രാംനാഥ് കോവിന്ദ് ചിലി പ്രസിഡന്റുമായി ചർച്ച നടത്തി ഇരുരാജ്യങ്ങളും തമ്മിൽ സാമ്പത്തികമേഖലയിലെ സഹകരണം ശക്തിപ്പെടുത്താൻ പ്രതിജ്ഞാബദ്ധമാണെന്ന് രാഷ്ട്രപതി പറഞ്ഞു ഇരുരാജ്യങ്ങളും തമ്മിൽ മൂന്ന് കരാറുകളിൽ ഒപ്പുവച്ചു ലാറ്റിൻ അമേരിക്കൻ മേഖലയിൽ നിന്ന് ഇന്ത്യയുമായി വ്യാപാരബന്ധം പുലർത്തുന്നതിൽ ചിലിക്ക് ആറാം സ്ഥാനമാണ് ചിലി വ്യാപാര കൂട്ടായ്മയേയും ചിലി സർവകലാശാല സംഘടിപ്പിച്ച യുവശാസ്ത്രജ്ഞരുടെ യോഗത്തിലും രാഷ്ട്രപതി സംബന്ധിച്ചു ക്രൊയേഷ്യയിലും ബൊളീവിയയും സന്ദർശിച്ച ശേഷമാണ് രാഷ്ട്രപതി ചിലിയിലെത്തിയത്

സന്ദർശനവേളയിൽ അമേരിക്കയിലെ ഉന്നത സൈനിക ഉദ്യോഗസ്ഥരുമായി സൈനിക സഹകരണം സംബന്ധിച്ച് ജനറൽ ചർച്ചകൾ നടത്തും അമേരിക്കയിലെ സംയുക്ത സേനാ വിഭാഗം ചെയർമാൻ ജനറൽ ജോസഫ് എഫ് ഡൺഫോർഡ് അമേരിക്കൻ കരസേനാ മേധാവി ജനറൽ മാർക്ക് എ മില്ലേ എന്നിവരുമായി ജനറൽ റാവത്ത് കൂടിക്കാഴ്ച നടത്തുമെന്ന് പ്രതിരോധവൃത്തങ്ങൾ അറിയിച്ചു ഇരു രാജ്യങ്ങൾക്കുമിടയിലെ സൈനിക സഹകരണം വർദ്ധിപ്പിക്കുന്നത് സംബന്ധിച്ചാണ് കരസേനാ മേധാവി ജനറൽ റാവത്ത് പ്രധാനമായും സംഭാഷണം നടത്തുക

ന്യൂക്സിയർ കമാൻഡ് അതോറിറ്റിക്ക് പ്രവർത്തനമേഖലയിൽ പ്പേ്ണ്ട നിർദ്ദേശങ്ങൾ നൽകുകയാണ് എസ്

സി എന്ന ത്ര്ത്രപ്രധാന സൈനിക വിഭാഗത്തിന്റെ ചുമതല

ഈ ആറ് ജില്ലകളിലെയും നിൽവിലെ ക്രമസമാധാന സാഹചര്യങ്ങൾ പരിഗണിച്ചാണ് തീരുമാനമെന്നും കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം അറിയിച്ചു

ജസ്റ്റിസുമാരായ അഖിൽ ഖുറേഷി സാരങ് കോട്വാൾ എന്നിവരടങ്ങിയ ബഞ്ചിന്റേതാണ് ഉത്തരവ്

ഇതിനോടകം ബ്രിട്ടീഷ് പാർലമെന്റ് മൂന്ന് വട്ടം മെയ് കൊണ്ടു വന്ന ബ്രക്സിറ്റ് കരാർ തള്ളിയിരുന്നു

ഇതിൽ ബ്രിക്സിറ്റ് സഹകരണം ആണവ വിതരണ ഗ്രൂപ്പ് എൻ

പരസ്പര താൽപ്പര്യമുള്ള അന്താരാഷ്ട്ര വിഷയങ്ങൾ ചർച്ചയിൽ കടന്നുവന്നതായി റഷ്യൻ എംബസി വൃക്തമാക്കുന്നു

ഇന്ന് നടക്കുന്ന മൽസരത്തിൽ റ്റോിയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂർ രാജസ്ഥാൻ റോയൽസുമായി ഏറ്റുമുട്ടും

ശുദ്ധജല വിതരണം കാര്യക്ഷമമാക്കാൻ ജല അതോറിറ്റിയും കൺട്രോൾ റൂം തുറന്നിട്ടുണ്ട് ഭാരതപ്പുഴയിൽ ശുദ്ധജല പദ്ധതികളിൽ ജലം ഉറപ്പാക്കാൻ ഇന്ന് മലമ്പുഴ ഡാം തുറക്കും

പുഴകളുടെ തീരത്തുള്ളവർ ജാഗ്രത പാലിക്കണമെന്ന് അധികൃതർ അറിയിച്ചു

വയനാട് ഒഴികെ ജില്ലകളിൽ ശരാശരിയിൽ നിന്ന് മൂന്ന് ഡിഗ്രി വരെ ചൂട് കൂടാനാണ് സാധ്യത

വേനൽമഴ അടുത്ത ദിവസങ്ങളിൽ പെയ്യാൻ സാധ്യതയില്ല എന്നും അറിയിപ്പുണ്ട്